ഇന്ന് വിടചൊല്ലും

മുരളീധരൻ

മിസൈൽ രുദ്രം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു

ഡൽഹിക്ക് ഉജ്ജ്വല വിജയം

ബിഹാർ മുഖ്യമന്ത്രി നിതീഷ്കുമാർ പ്രെപ്യൂട്ടി മുഖ്യമന്ത്രി സൂശീൽ കുമാർ മോദി പ്രതിപക്ഷനേതാവ്ട്തേജസി പ്രസാദ് യാദവ് തുടങ്ങിയവർ അന്തരിച്ച നേതാവിന് ആദ്ദരാജ്ഞലി അർപ്പിച്ചു ബിഹാർ നിയമസഭ മന്ദിരത്തിൽ പൊതുദർശനത്തിനു വച്ച ഭൌതിക ശരീരത്തിൽ നിരവധി നേതാക്കൾ ആദരാജ്ഞലി അർപ്പിച്ചു പിന്നീട് എൽ ജെ പി സംസ്ഥാനകമ്മിറ്റി ഓഫീസിലും ഭൌതികശരീരം പൊതുദർശനത്തിനു വച്ചു പട്നയിലെ ഗംഗാതീരത്ത് ഇന്ന് സംസ്കാരചടങ്ങുകൾ നടക്കും

ഗ്രാമീണ ഇന്ത്യയെ പരിവർത്തനാത്മക്ട് സ്പ്രീധീനം ചെലുത്തുകയും ആളുകളെ ശാക്തികരിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം

ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ലക്ഷത്തോളം പ്രോപ്പർട്ടി ഉടമകൾക്ക് അവരുടെ മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്ന എസ് എം എസ് ലിങ്ക് വഴി പ്രോപ്പർട്ടി കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാൻ സാധിക്കും

ഉത്തർപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുത്ത ഗ്രാമങ്ങളിലാണ് പദ്ധതി നിലവിൽ വരുക

ചടങ്ങിൽ പ്രധാനമന്ത്രി ചില ഗുണഭോക്താക്കളുമായി സംവദിക്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി

ചേരിചേരാപ്രസ്ഥാനത്തിന്റെ വിർച്ചൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വിഷയത്തിന്റെ ആഗോളപ്രസക്തി കൂടി മനസിലാക്കിവേണം ഓരോ രാജ്യവും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടത് ഒരു രാജ്യത്തിന്റെയും ഐക്യവും അഖണ്ഡതയും ബാധിക്കുന്ന വിഷയങ്ങൾ ഇത്തരം വേദികളിൽ ഉന്നയിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഭീകരവാദവും പ്രയോക്താക്കളും അവരുടെ പറഞ്ഞു

കാലാവസ്ഥാവ്യതിയാനം നിലനിൽപിനെത്തന്നെ ബാധിക്കുന്ന അവസ്ഥയിലാണ് സൈബർ സുരക്ഷാ പ്രശ്നങ്ങളും വെല്ലുവിളിയുയർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

നികുതി ദായകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രധനമന്ത്രാലയം അഭ്യർത്ഥിച്ചു രണ്ട് കോടിയിലധികം വാർഷികം വരുമാനമുള്ള നികുതി ദായകർക്ക് വാർഷിക റിട്ടേൺ നിർബന്ധമാണ് അതേസമയം അഞ്ച് കോടിയിലധികം വിറ്റുവരവുള്ള വ്യാപാരികൾക്ക് രേഖ തിരുത്തി സമർപ്പിക്കാനും അവസരമുണ്ട്

കോവിഡ് പടരുന്ന പശ്ചാത്തലത്തിൽ പൊതുസമ്പർക്കം പരമാവധി ഒഴിവാക്കിയുള്ള പ്രചരണം ലക്ഷ്യമിട്ടാണ് പ്രസാർഭാരതിയുമായി ചേർന്ന് തീരുമാനം കൈകൊണ്ടത് പ്രാദേശിക കേന്ദ്രങ്ങളിലൂടെയും ബിഹാറിലെ മറ്റ് സ്റ്റേഷനുകളിൽ നിന്നും സൌകര്യം ലഭ്യ്മാക്കും

മുൻ തെരഞ്ഞെടുപ്പുകളിലുള്ള പ്രക്ടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടികൾക്ക് കൂടുതൽ ്രസ്സമയം അനുവദിക്കുക എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു

കിരീടാവകാശിയായ ഷേക്ക് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു ഇന്ത്യ കുവൈറ്റ് സൌഹൃദം കൂടുതൽ കെട്ടുറപ്പുള്ളതായി തുടരുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ ആഗോളതലത്തിൽ രോഗമുക്തി നിരക്കിൽ ഒന്നാമതാണ്

അന്തിമ ലക്ഷ്യത്തിൽ കൃത്യതയോടെ ഭേദിക്കാൻ ഐ

എസ് ജി

എസ്